ആഗോള ശക്തിയാക്കി മാറ്റാനുള്ള അവസരമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സ്വാശ്രയ ഭാരതത്തിനായി പ്രധാദ്നൂമന്ത്രിയുടെ അഞ്ച് നിർദ്ദേശങ്ങൾ

ഒരു് ദിവസം ഇത്രയധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യം

അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളെ മടക്കി എത്തിക്കും

നിസർഗ ചുഴലിക്കാറ്റ് നാളെ മുംബൈ തീരം തൊടും

മഹാരാഷ്ട്രയിൽ പിവിധ ജില്ലകളിൽ ദുരന്ത നിവാരണസേനയെ വിന്യസിച്ചു

ക് കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ രാജ്യത്തിന്റെ സമ്പദ്വൃഷ്ണ്ഡയെ വളർച്ചയുടെ പാതയിലേയ്ക്ക് തിരികെ എത്തിക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

എട്ട് കോടി പാചകവാതക സിലിണ്ടറുകൾ സൌജന്യമായി നൽകി

സമ്പദ് വ്യവസ്ഥയിലും കൽക്കരി ബഹിരാകാശ ആണവ മേഖലകളിലും ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന പരിഷ്ക്കാരങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കിയത് കാർഷിക മേഖലയിലും ചെറുകിട ഇടത്തരം വൃവസായ മേഖലയിലും കൊണ്ടു വന്ന പരിഷ്കാരങ്ങൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവ് രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പിച്ചതായും ശ്രീ മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നിക്ഷേപം അടിസ്ഥാന സൌകര്യം വികസനം നൂതനാശയങ്ങൾ ദൃഢനിശ്ചയം എന്നിവയാണ് സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ജീവൻ രക്ഷ്മിക്കലാണ് പരമപ്രധാനം എന്നതിനാലാണ് കൃത്യ സമയത്ത് ലോക്ട്ഡ്ടൌൺ പ്രഖ്യാപിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാവി പ്പിത്രീസ്ന്ധി നേരിടാൻ രാജ്യം സജ്ജമാണെന്നും പ്രധാനമന്ത്രി ക്ടൂട്ടീച്ചേർത്തു

ചെറുകിട സംരംഭങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പ്രധാന ലക്ഷ്യം

കിറ്റുകൾ മുഖാവരണങ്ങൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ടിട്ടുണ്ട്

എം

തീരുമാനം ഒട്ടേറെ വ്യവസായ സംരംഭങ്ങൾക്ക് സഹായകമാകും

വായ്പാ തിരിച്ചടവിന് കർഷകർക്ക് ് ആഗസ്റ്റ് വരെ സമയം നൽകുമെന്നും കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പറഞ്ഞു

ഇന്ന് തിരുവനന്തപുരത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു

പാലക്കാട് ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു

വിവിധ ഘട്ടങ്ങളിലായി പൊതുഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് ടിക്കറ്റ് നിരക്കിൽ വർദ്ധനവുണ്ടാകില്ല

മഹാരാഷ്ട്രയിലെ തീരുദ്ദേൾ ജില്ലകളായ സിന്ധുദൂർഗ് രത്നഗിരി താനെ റായ്ഗഡ് മുംബ്ബൈ പാൽഗഡ് എന്നിവിടങ്ങളിൽ ചുഴലിക്കാറ്റ് ബാധിക്കും

ചുഴലിക്കാറ്റ് രൂപം കൊണ്ട സാഹചരൃത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടിയന്തര യോഗം വിളിച്ചു ദുരന്ത നിവാരണ കാലാവസ്ഥാ വിഭാഗം ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു

ഇന്ന് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ആന്ധ്ര പ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാല് വീതവും മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് വീതവും ത്ധാർഖണ്ഡിൽ നിന്നുള്ള രണ്ട് മണിപ്പൂർ മേഘാലയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ സീറ്റുകളിലുമാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്

രാത്രി അബുദാബിയിൽ നിന്നും പ്രവാസികളുമായി ഒരു വിമാനം വിമാനങ്ങൾ കണ്ണൂരിലെത്തും

അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം പതിനെട്ടര ലക്ഷം കവിഞ്ഞു